പുതുതായി ആരിലും കൊറോണ ബാധ കണ്ടെത്താത്തതിനെ തുടർന്നാണ് പ്രഖ്യാപനം പിൻവലിക്കുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ദുരന്ത പ്രഖ്യാപനം പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സംസ്ഥാനത്ത് കർശന ജാഗ്രതയും നിരീക്ഷണവും തുടരും കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ ആരോഗൃ വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനം തുടർന്നും പ്രവർത്തിക്കും

രോഗബാധ സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്ന മൂന്നുപേരുടെയും ആരോഗൃനില തൃപ്തികരമാണ്

മൂന്ന് പേരിൽ രോഗബാധ കണ്ടെത്തിയെങ്കിലും കരുതലോടെ മുന്നേ റാൻ കഴിഞ്ഞതിലൂടെ രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞതിൽ കെ കെ ശൈലജ സംതൃപ്തി അറിയിച്ചു ആരോഗൃവകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്ക് ജന പിന്തുണ ലഭിച്ചതും ജീവനക്കാർ വിശ്രമമില്ലാതെ രംഗത്തിറങ്ങിയതും മാധ്യമ ങ്ങൾ ബോധവത്കരണത്തിന് സഹായിച്ചതുമാണ് രോഗബാധ നിയന്ത്രിക്കാൻ സഹായിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ആലപ്പുഴ നാഷണൽ വൈറോളജി കേന്ദ്രത്തിൽ സാമ്പിളുകൾ പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയി ട്ടുണ്ട് ദർവ്വട്ടെഴ ചൈനയിൽ നിന്ന് ഇന്നലെ എയർഏഷ്യ വിമാനത്തിൽ കൊണ്ടുവന്ന പതിനഞ്ച് മലയാളി വിദ്യാർത്ഥികളെ കൊച്ചി മെഡിക്കൽ കോളജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി

ചൈനയിലെ ഹൃൂബി പ്രവിശൃയിൽ നിന്നാണ് ഇവരെ നാട്ടിലെത്തിച്ചത് അണുവിമുക്തമാക്കിയ ആംബുലൻസുകളും ഡോക്ടർമാരുടെ സംഘവും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു

കളമശേരി മെഡി ക്കൽ കോളജിൽ ഐസൊലേഷൻ വാർഡിലുണ്ടായിരുന്ന നാലുപേരെയും രോഗബാധ കണ്ടെത്താത്തിനെ തുടർന്ന് വിട്ടയച്ചു കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചി മെട്രോയിലും പ്രധാന മാളുകളിലും ട്രെയിനുകളിലും രോഗ പ്രതിരോധ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്

ഇവർക്ക് മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് കൌൺസലിങ് നടത്തി വരുന്നു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ രണ്ട് പേർ കഴിയുന്നുണ്ട് പരിശോധനാ ഫലം ലഭിച്ച മൂന്ന് കേസുകളും നെ ഗറ്റീവ് ആണ് കണ്ണൂർ ജില്ലയിൽ കൊറോണ വൈറസ് ബാധ സംശയിച്ച് പ രിശോധനക്കയച്ച പതിനൊന്ന് സാമ്പിളുകളിൽ അഞ്ചെണ്ണത്തിന്റെ ഫലം കൂ ടി നെഗറ്റീവാണെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു പരിശോധനാ ഫലം നെ ഗറ്റീവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ ഉണ്ടായിരുന്ന വിദ്യാർഥിയെ വിട്ടയച്ചിരുന്നു

കൊ റോണ രോഗ പ്രതിരോധ നടപടികളുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ ആശു പത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം പത്തായി കുറഞ്ഞു

രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനി യുടേത് ഒഴികെ മറ്റെല്ലാ ഫലവും നെഗറ്റീവാണ് മെഡിക്കൽ കോളേജിൽ ക ഴിയുന്ന രോഗം ബാധിച്ച വിദ്യാർത്ഥിനിയുടെ നില തൃപ്തികരമായി തുടരു കയാണ് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കഴിഞ്ഞ ഒരാൾ കൂടി ആശുപത്രി വിട്ടു കൊറോണ വൈറസ് സംശയത്തിൽ ഇപ്പോൾ ആരും ആശുപത്രിയിൽ നിരീക്ഷണത്തിലില്ല

കൊ ല്ലം ജില്ലയിൽ കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ത്വരിതപ്പെടുത്തി

കൊറോണ ബാധ ചെറുക്കാൻ ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് അമേരിക്ക നൂറ് മില്യൻ യു എസ് ഡോളർ സഹായധനം പ്രഖ്യാപിച്ചു

നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് രാവിലെ എട്ടിന് തുടങ്ങും

ആംആദ്മി പാർട്ടിയും ബി

പിയും കോൺഗ്രസും തമ്മിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ

ഈ ട്രെയിനുകളുടെ സർവീസും സുരക്ഷാകാര്യങ്ങളും റെയിൽവെക്ക് തന്നെയായിരിക്കുമെന്ന് എഴുതി നൽകിയ മറുപടിയിൽ റെയിൽവെ മന്ത്രി വ്യക്തമാക്കി രദ്ദേഷ്ടങ സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളികളെയും ഗവൺമെന്റിന്റെ ഏതെ ങ്കിലും ക്ഷേമപദ്ധതിയിൽ അംഗങ്ങളാക്കുമെന്ന് മന്ത്രി ടി

തൊഴിൽ വകുപ്പിന് കീഴിലെ ക്ഷേമനിധി ബോർഡുകൾ ഈ ലക്ഷ്യ ത്തോടെ മുന്നോട്ടു പോവുകയാണ് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ സംഘ ടനകൾ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ദർവ്വഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരി പാടികളിൽ പങ്കെടുക്കും രാവിലെ ചാല് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും തുടർ ന്ന് കൂത്തുപറമ്പ് സബ്ജയിലിന് തറക്കല്ലിടും വൈകീട്ട് കണ്ണൂർ പ്രസ് ക്ത ബിന്റെ ഒരു വർഷത്തെ സുവർണ്ണ ജൂബിലി ആഘോഷവും മുഖ്യമന്ത്രി ഉദ് ഘാടനം ചെയ്യും

ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് ആരംഭിക്കുന്ന ആദ്യ സെമിയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മധ്യപ്രദേശ് ഹോക്കി അക്കാദമിയെ നേരിടും

രുട്ട്ട്ട്ട്ട്ട്ട്ട ഗോഹട്ടിയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിലെ കേരളാ ബ്ലാസ്റ്റേ ഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരി ഞ്ഞു

സി റിയൽ കശ് മീർ എഫ്

തിങ്കളാഴ്ച സെമിയിൽ ഗോകുലം കേരള സേതു എഫ് സിയെ നേരിടും

കെ നായിഡു ട്രോഫി ചതുർദിന ക്രിക്കറ്റ് മത്സരത്തിൽ കേരളം വിജയത്തിലേക്ക്

യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയ ത്തിൽ സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും

ദർവ്വക്ക മാനന്തവാടി കുറുക്കൻമൂലയിലെ നെൽപ്പാടത്ത് ഷോക്കേറ്റ് മരിച്ച നില യിൽ കണ്ടെത്തിയ ആദിവാസി യുവതിയുടെ മരണത്തെക്കുറിച്ച് ഡി

പി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു വയനാട് ജില്ലാ പൊലീ സ് മേധാവിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസ് നിർദ്ദേ ശം നൽകിയത്

രദ്ദേഷ്ടങ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനു കീഴിൽ കോട്ടയം ഏറ്റുമാ നൂരിൽ പ്രവർത്തിച്ചു വന്ന കോട്ടയം ടെക്സ്റ്റൈൽസ് ലേ ഓഫ് ചെയ്തു

രദേഷ്ടെടു കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആന്റ് വർക്കേഴ്സ് അഖിലേന്ത്യാ സമ്മേളനം നാഗ്പൂരിൽ തുടങ്ങി

ഐ

യു ജനറൽ സെക്രട്ടറി തപസ് സെൻ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാരൃത്തിൽ തീരുമാനമെടുത്തത്